സമരം ചെയ്യുന്ന കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏഴാംവട്ട ചർച്ച നാളെ

ഇന്ന് രാവിലെ വിളിച്ച് ചേർത്ത പത്രസമ്മേളനത്തിൽ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ വി ജി സോമാനിയാണ് ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശുങ്ക്ർ വാക്സിനുകളുടെ നിയന്ത്രിത ഉപയ്യോഗ്ത്തിനായി വിദഗ്ദ്ധ സമിതി ശുപാർശ നൽകിയതിക്കു തുടർന്നാണ് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യ ആനു്മത്രി നൽകുന്നതെന്ന് ശ്രീ

വാക്സിന്റെ രണ്ടാമത്തെ യും മൂന്നാമത്തെയും ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കും ഇതോടൊപ്പം സെറം ഇന്സ്ടിട്യൂട്ടിന് അനുമതി നൽകിയി ട്ടുണ്ട്

ഡിഎൻഎ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സിഡസ് കാഡ്ലിയ നിർമ്മിച്ച കോവിഡ് വാക ്സിന്റെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിന് അനുമതി നൽകിയതായും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്വാശ്രയ ഇന്ത്യയെന്ന സ്വപ്നം നിറവേറ്റാനുളള ഇന്ത്യൻ ശാസ്ത്രസമൂഹത്തിന്റെ അഭിനിവേശമാണ് ഇത് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഭാരത് ബയോടെക് എന്നിവയുടെ വാക്സിനുകൾക്ക് ഡി

കോവിഡ് വാക്സിനുകൾക്ക് ഡി

അനുമതി നൽകിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന നേട്ടമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു

കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്ര സിംഗ് തോമറും പീയൂഷ് ഗോയലുമാണ് കഴിഞ്ഞ ചർച്ചകളിൽ പങ്കെടുത്തത്

കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രമൃമായ പരിഹാരത്തിൽ എത്തിച്ചേരാൻ ഇരുപക്ഷവും നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രിപറഞ്ഞു

ആവശ്യമായ പരിശോധനകൾക്ക് ശേഷമാണ് വാക്സിനുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് നേരിയ സുരക്ഷാ പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അനുമതി നൽകുമായിരുന്നില്ല

കേരളത്തിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും വൃവസായങ്ങൾക്കുമുള്ള ഇന്ധനക്ഷാമത്തിന് ഇതോടെ ശാശ്വത പരിഹാരമാകും വിശദാംശങ്ങളുമായി അക്ഷയ് കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ധന വിലയിലും വലിയ കുറവുണ്ടാകും

കേരളത്തിലും കർണാടകയിലും പരിസ്ഥിതി സൌഹൃദ ഇന്ധനം വ്യാപകമാക്കുന്നതിൽ സുപ്രധാന നാഴികകല്ലാണ് പദ്ധതി

കൊച്ചി ടെർമിനലിൽ നിന്നുള്ള വാതകം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ വഴി ദക്ഷിണ കന്നഡയിലെ മർഗ്ഗലാപുരത്തെത്തും

കേന്ദ്ര ക്പ്ട്രോളിയം പ്രകൃതി വാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ക്കേരളിഗ്വർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കർണാടക ഗവർണർ പ്പാജുഭായ് വാല മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി ബി

യെദ്യൂരപ്പ എന്നിവർ പങ്കെടുക്കുമെന്ന് ഗെയിൽ സി

മനോജ് ജെയിൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന കരസേന ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസ് സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി

നിരവധി പേർക്ക് പരിക്കേറ്റു

കർണാടക സ്വദേശികളായ രണ്ട് കുട്ടികളും രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് മരിച്ചത്

ജമ്മുകശ്മീരിലും കനത്ത മഞ്ഞുവീഴ്ച

ഇന്നും നാള്ളെയും താഴ്വരയിലെ പല പ്രദേശങ്ങളിലും വ്യാപക്കമായ് മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷ്ട്ണ് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്